ത ഗവർണറുടെ നടപടി ദൌർഭാഗ്യകരമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അനുമതി നിഷേധിച്ചത് സ്വാഗതാർഹമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ

കെ ശൈലജ

എസ് എൽ ഫുട്ബോളിൽ ഒഡീഷ നോർത്ത് ഈസ്റ്റ് യുനൈറ്റഡ് മത്സരം സമനിലയിൽ പിരിഞ്ഞു വാർത്തകൾ വിശദമായി ഇന്ന് ചേരാനിരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ച ഗവർണറുടെ നടപടി ഭരണഘടനയ്ക്ക് നിരക്കാത്തതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഗവർണർക്ക് അയച്ച കത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് നിയമസഭ വിളിക്കുന്ന കാര്യത്തിൽ ഗവർണർക്ക് വിവേചനാധികാരമില്ലെന്നും നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഗവൺമെന്റിന് ഉള്ളപ്പോൾ ശുപാർശ തള്ളിക്കളയാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും മുഖ്യമന്ത്രി കത്തിൽ പറയുന്നു ഒരു ദിവസത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് ഗവൺമെന്റ് നൽകിയ ശുപാർശ സഭ ചേരേണ്ട അടിയന്തര സാഹചര്യമില്ലെന്ന് വിലയിരുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിരസിക്കുകയായിരുന്നു സഭാ സമ്മേളനം വിളിക്കേണ്ട അടിയന്തര സാഹചര്യം ഇല്ല എന്ന വാദം തെറ്റാണെന്നും ഭക്ഷ്യസാധനങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കേരളത്തിന് കർഷക സമൂഹവും കാർഷിക മേഖലയും നേരിടുന്ന പ്രശ്നങ്ങളിൽ ഉൽക്കണ്ഠയുണ്ടെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു രംഭ ഇന്നത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് ഗവർണർ അനുമതി നിഷേധിച്ചത് ദൌർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു അടിയന്തര പ്രാധാന്യമില്ലെന്ന സാങ്കേതിക കാരണത്തിന്റെ പേരിൽ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി ഗവർണർ അനുമതി നൽകിയില്ലെങ്കിലും നിയമസഭയിലെ മെമ്പേഴ്സ് ലോഞ്ചിൽ സമ്മേളിച്ച് കേന്ദ്ര നിയമങ്ങൾക്കെതിരായ പ്രമേയം പാസാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് മന്ത്രി എ കെ ബാലനോട് ആവശ്യപ്പെട്ടു രംഭ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാൻ സ്പീക്കർ നൽകിയ ശുപാർശ നിരസിച്ച ഗവർണറുടെ നടപടി സ്വാഗതാർഹമാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു പാർലമെന്റ് പാസ്സാക്കിയ കാർഷിക പരിഷ്കരണ നിയമത്തിനെതിരെ പ്രമേയം കൊണ്ടുവരാൻ ഭരണ പ്രതിപക്ഷ സഖ്യം നടത്തിയ നീക്കം ഭരണഘടനാ വിരുദ്ധമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു ജനാധിപത്യ വിരുദ്ധ നീക്കം തടഞ്ഞ ഗവർണറുടെ നടപടിയെ മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാലും സ്വാഗതം ചെയ്തു രംഭ ബ്രിട്ടണിൽ കോവിഡ് വൈറസിന്റെ ജനിതക വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ

വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും നിരീക്ഷണം ശക്തിപ്പെടുത്താനും പരിശോധനാ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാനും നടപടിയെടുക്കാൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു

കെയിൽ നിന്നോ അതുവഴിയോ വരുന്നവരെ കണ്ടെത്താൻ നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്

രംഭ രാജ്യത്തെ കോവിഡ് വാക്സിൻ വിതരണം ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ മുൻഗണനാ ക്രമത്തിലായിരിക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായിരിക്കും മുന്തിയ പരിഗണന

രുര കോവിഡ് ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന സുഗതകുമാരി ടീച്ചറുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു വെന്റിലേറ്റർ സഹായത്തോടെ കഴിയുന്ന അവരുടെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഗുരുവായൂർ ക്ഷേത്രം തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയായി ഏതാനും ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെത്തുടർന്ന് രണ്ടാഴ്ചയായി ക്ഷേത്രം അടച്ചിട്ടിരുന്നു ജീവനക്കാരിൽ കോവിഡ് വ്യാപനം കുറഞ്ഞുവെന്ന് ബോധ്യപ്പെട്ടതിനെത്തുടർന്നാണ് ക്ഷേത്രം തുറക്കാൻ തീരുമാനിച്ചത് രമേ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് രോഗത്തെ അതിജീവിച്ച് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുപോവാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം ആകാശവാണിയോട് പങ്കുവെച്ച് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവും നടിയുമായ സരസ ബാലുശ്ശേരി

കേസിലെ പ്രതികളായ ഫാദർ തോമസ്

കോട്ടൂരും സിസ്റ്റർ സെഫിയും കുറ്റക്കാരാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു

പ്രതികൾക്കെതിരെ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച വകുപ്പുകളും ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂരിനെതിരെ കുറ്റകൃത്യത്തിനായി അതിക്രമിച്ച് കടക്കൽ വകുപ്പും ചുമത്തിയിട്ടുണ്ട് രുഭ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഒഡീഷ എഫ്

ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി ഇന്ന് വൈകിട്ട് ജംഷഡ്പൂർ എഫ് സി ഗോവയെ നേരിടും രംഭ ദക്ഷിണ മേഖലാ ദേശീയ സീനിയർ ടെന്നിസ് ബോൾ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ കേരള പുരുഷ ടീമിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി തുടർച്ചയായി മൂന്നാം തവണയാണ് പുരുഷ ടീം ചാമ്പ്യന്മാരായത് രംഭ തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പദ്ധതി നാല് ഘട്ടങ്ങളായി നടപ്പാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം വരെ നീളുന്ന പൈതൃക ടൂറിസം പദ്ധതിയ്ക്ക് രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു തിരുവനന്തപുരത്തെ ചരിത്ര പ്രാധാന്യമേറിയ കെട്ടിട സമുച്ചയങ്ങൾ സംരക്ഷിക്കാനും പ്രകാശ സംവിധാനം ഉപയോഗിച്ച് കൂടുതൽ മനോഹരമാക്കാനും പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നു സെക്രട്ടേറിയറ്റ് മന്ദിരം ലേസർ പ്രൊജക്ഷൻ ഉപയോഗിച്ച് ആകർഷകമാക്കും ആറ്റിങ്ങൽ കിളിമാനൂർ കൊട്ടാരങ്ങളും കൊല്ലത്തെ ചീനക്കൊട്ടാരവും ചിന്നക്കടയിലെ ക്ലോക്ക് ടവറും നവീകരിച്ച് മനോഹരമാക്കും പദ്ധതിയുടെ ആദ്യഘട്ടം ഉടൻ ആരംഭിക്കാൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു രംഭ ദേശീയ അന്വേഷണ ഏജൻസി ഇന്നലെ തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഏഴിടത്ത് പരിശോധന നടത്തി സിറിയയിലെ ജന്ദ് അൽ അഖ്സ എന്ന ഭീകര സംഘടനയുമായി ബന്ധം പുലർത്തിയ പ്രവാസികളുടെ വീടുകളിലായിരുന്നു റെയ്ഡ്

വൻകിട ഇടത്തര ചെറുകിട ഉപഭോക്താക്കൾക്കും വ്യക്തികൾ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കുമാണ് അവാർഡുകൾ വൻകിട വിഭാഗത്തിൽ ചവറയിലെ കേരള മിനറൽസ് ആന്റ് മെറ്റൽസ് ഉദ്യോഗമണ്ഡൽ എഫ്

ടി എന്നിവ ഒന്നാം സ്ഥാനം പങ്കുവെച്ചു ഇടത്തര വിഭാഗത്തിൽ കോഴിക്കോട്ടെ മലബാർ റീജിയണൽ കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനാണ് ഒന്നാം സ്ഥാനം ചെറുകിട വിഭാഗത്തിൽ ആലപ്പുഴയിലെ കെയാ ഫുഡ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് അവാർഡ് കെട്ടിട വിഭാഗത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് അവാർഡിന് അർഹമായപ്പോൾ വ്യക്തിഗത വിഭാഗത്തിൽ കൊല്ലം നോർത്ത് മൈനാഗപ്പള്ളിയിലെ ജെ

സ്ഥാപന വിഭാഗത്തിൽ കോട്ടയം കാണക്കാരി ഗ്രാമപഞ്ചായത്തിനാണ് പുരസ്കാരം

ടെക്നിക്കൽ ആർട്ട് സെക്കൻ്ററി പരീക്ഷകളും ഇതോടൊപ്പം നടത്തും

പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാന പ്രശ്നങ്ങളും അതിജീവിക്കാൻ സഹായിക്കുന്ന പദ്ധതികൾക്ക് തുക പ്രയോജനപ്പെടുത്തും

എല്ലാ മിൽമ ബ്രാൻഡ് കാലിത്തീറ്റകൾക്കും സബ്സിഡി ലഭ്യമാകുമെന്ന് ചെയർമാൻ പി എ ബാലൻ മാസ്റ്റർ അറിയിച്ചു ദേദ ഇടുക്കി കോഴിക്കാനം എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു ഗ്രാറ്റുവിറ്റി കൺട്രോൾ അതോറിറ്റി അനുകൂല ഉത്തരവ് പാസ്സാക്കിയിട്ടും തുക നൽകിയിട്ടില്ല